ഇന്ന് ഉദ്ഘാടനം ചെയ്യും

കമ്പനികളോട് കുപ്പിവെള്ള വിതരണത്തിന് മൂന്ന് ദിവസത്തിനുള്ളിൽ ബദൽ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ

ഇന്ന് ഖത്തറിനെ നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ടീയും നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ്മ ഒലിയും സംയുക്തമായി വീഷ്ടുയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഉദ്ഘ്പാട്നും നിർവ്വഹിക്കുക ദക്ഷിണേഷ്യയിലെ ആദ്യ അന്താരാഷ്ട്രീ ്യാതക പൈപ്പ്ലൈനാണിത്

ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഊർജ്ജ രംഗത്തെ അടുത്തു സ്ഹുകരണത്തിന്റെ പ്രതീകമാണ് പൈപ്പ്ലൈനെന്ന് പ്രധാനമന്ത്രീ നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെന്നൈയിലും കേന്ദ്രനിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അഹമ്മദാബാദിലും മാധ്യമങ്ങളെ കാണും

ഇന്നലെ ഹൈദരാബാദിൽ ആകാശവാണിക്കു നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഉപഭോക്താവിന്റെ പരാതികളിൽ യഥാസമയം നടപടി ഉണ്ടാകാനും അനാവശ്യ നിരക്ക് വർദ്ധന ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ബിൽ കൊണ്ടുവരുന്നത് രണ്ടാം മോദി ഗവൺമെന്റിന്റെ നൂറ് ദിവസത്തെ വികസന പ്രവർത്തനങ്ങളും മന്ത്രി വിശദീകരിച്ചു

പെപ്സി കൊക്കക്കോള അടക്കുമുള്ള കമ്പനികളുമായും ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുമായും ന്യൂഡൽഹീയ്യിൽ നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാരൃം ആവശ്യപ്പെട്ടത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രിതല സമിതി രൂപീകരിച്ചതായി ശ്രീ രാംവിലാസ് പാസ്വാൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് കുപ്പികളാണെന്ന് മന്ത്രി പറഞ്ഞു പേപ്പർകുപ്പികളിലും ചെറിയ അളവ് വരെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ആ മാർഗ്ഗവും പൂർണ്ണമായ ഉപയോഗിക്കാനാവില്ല

ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നത് വഴി ആർക്കും തൊഴിൽ നഷ്ടപ്പെടില്ലെന്നും ഇവർക്കായി ബദൽമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ വിതരണം ചെയ്യുന്ന കുപ്പിവെള്ളമായ റെയിൽ നീർ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് മറ്റ് ജൈവമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്

അടുത്ത മാസം രണ്ട് മുതൽ രാജ്യവ്യാപകമായി പ്ലാസ്റ്റിക് മാലിനൃങ്ങൾ ശേഖരിച്ച് പുനരുപയോഗം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്പീകരിക്കും

എക്സ് മീഡിയ കേസിൽ ഇന്ദ്രാണി മുഖർജിയെ ചോദ്യം ചെയ്യാൻ സി ബി ഐ യ്ക്ക് മുംബൈ കോടതിയുടെ അനുമതി

എക്സ് മീഡിയയുമായി ബന്ധപ്പെട്ട പണമിടപാട് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് സി

ഐ കോടതിയിൽ ആപ്രേക്ഷ നൽകുകയായിരുന്നു ഈ കേസിൽ കോൺഗ്രസ് നേതാവും മുൻ ക്കൂന്റ് മന്ത്രിയുമായ പി ചിദംബരത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു

ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ ഐസ്ലാന്റിലെത്തിയ രാഷ്ട്രപതിക്ക് ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകി ഇന്ത്യയിൽ ്നിർണ്ണായകമായ പരിഷ്ക്കരണങ്ങൾ നടക്കുകയാണെന്ന് രാഷ്ട്രപതി സൂചിപ്പിച്ചു

തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ

വ്യാപാര സ്ഥാപനങ്ങൾ മുതൽ കലാവേദികൾ വരെ തിരക്കിലമർന്നു അവസാനവട്ട ഒരുക്കങ്ങൾക്കായുള്ള ഉത്രാടപാച്ചിലിൽ ഇന്ന് വ്യാപാര മേഖലകളിൽ തിരക്കേറും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം കനകകുന്നിൽ ഉദ്ഘാടനം ചെയ്യും

എല്ലാ റേഷൻകാർഡ് ഉടമകൾക്കും സബ്സിഡി നിരക്കിൽ രണ്ട് കിലോ പഞ്ചസാര ലഭിക്കും

സപ്ലൈകോ കൺസ്യൂമർഫെഡ് ഓണചന്ത എന്നിവിടങ്ങളിൽ നിന്ന് ഒരു കിലോ പഞ്ചസാര ലഭിക്കും

ബസ്സ് സ്റ്റാന്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാന്റ്ത്താവളങ്ങൾ എന്നിവിടങ്ങളിലും ജനങ്ങൾ കൂടുന്ന മറ്റ് സ്ഥലങ്ങളിലും അതീവ ജില്ലക്കുത് പുലർത്താനും നിർദ്ദേശമുണ്ട്

പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും വിശ്വാസികൾ വ്രതവും അനുഷ്ഠിക്കും

മഹേന്ദ്രനാഥ് പാണ്ഡെ മൈസൂരിൽ നൈപുണ്യവികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പൂനെയിൽ പുതിയ പ്രതിരോധമരുന്ന് ഗവേഷണ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും ക്രൂതിർന്ന ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു

കഴിഞ്ഞ യോഗ്യതാ മൽസരത്തിൽ ഒമാനോട് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു

ജമ്മു ഡിവിഷനിലെ രെസായിയിൽ നടന്ന റിക്രൂട്ട്മെന്റിൽ യുവാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഉണ്ടായത്

മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്ന്േുട്ടിന്റെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദ്യർന്ത്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരം ഷെൽട്ടറുകൾ നിർമിക്കും കൃാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വീടുകൾ നിർമിക്കുന്നതുവരെ താമസിക്കൂന്നതിന് സംവിധാനം ഒരുക്കും